ടൌട്ടെ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ഇന്ന്

കേരളത്തിൽ മൂന്നുദിവസം കനത്ത് മൃഴയ്ക്കും കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത്ത്യെന്നു ് കാലാവസ്ഥാ കേന്ദ്രം

പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്

കേരളത്തിലും ലക്ഷദ്വീപ്പിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മൂന്ന് ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത്ത്യുണ്ട് തമിഴ്നാട്ടിൽ ഇന്നും കർണാടകത്തിലും ഇന്നും നാളെയും മഴയുണ്ടാകും ഗുജറാത്തിലെ തീരപ്രദേശ ജില്ലകളിൽ നാളെയും സംസ്ഥാനമൊട്ടാകെ മറ്റന്നാളും കനത്ത മഴയ്ക്ക് സാധൃത്യുണ്ട് അതേസമയം അറബിക്കടലിന്റെ മധ്യ കിഴക്കൻ മേഖലകളിൽ ഇന്നും നാളെയും കടൽക്ഷോഭം ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും കൊമോറിൻ ഭാഗത്തും ഇന്ന് കടൽ പ്രക്ഷുബ്പമായേക്കാം മറ്റന്നാൾ മുതൽ അറബിക്കടലിന്റെ വടക്ക് കിഴക്കൻ മേഖലകളും പ്രക്ഷുബ്നമാകാൻ സാധൃതയുണ്ട്

തിരുവനന്തപുരം പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്

കടൽ ക്ഷോഭത്തെ തുടർന്ന് ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിർത്തി വച്ചു

കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ദേശീയ ദുരന്തനിവാരണ അതോറിറ്റി കേന്ദ്ര ദുരന്ത നിവാരണ സേന പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും

രോഗമുക്തി നിരക്ക് തുടർച്ചയായി വർദ്ധിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരുടെ എണ്ണം രണ്ട് കോടി നാല് ലക്ഷം പിന്നിട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കന്യാകുമാരി മധുര തിരുവള്ളൂർ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ ആയിരത്തിലേറെ പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

നെടുമ്പാശേരി വിമാനത്താവളത്തിൽ സൌമൃയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും കേന്ദ്ര വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ ഡൽഹി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മൃത്യദ്ദേഹ്ട് ഏറ്റുവാങ്ങി

ഉത്തർപ്രദേശ് ആന്ധ്ര പ്രദേശ് മധ്യ പ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായിട്ടാണ് വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം യോഗം ചേരുന്നത്

ഓക്സിജന് ആവശ്യക്കാർ വർദ്ധിക്കുന്നതിനാൽ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ആന്ധ്രയിലേക്ക് എത്തുന്ന വിദേശ യാത്രക്കാർക്ക് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദ്ദേശിലെ ക്വാറന്റൈൻ മാർഗ്ഗനിർദ്ദേശങ്ങളും പുതുക്കിയിട്ടുണ്ട്

ആർ

ഒ വികസിപ്പിച്ച മരുന്ന് അടുത്തയാഴ്ചയോടെ നൽകി തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ

ആർ ഡി

ഈ മരുന്നിന്റെ അടിയന്തര ഉപയോഗത്തിന് അടുത്തിടെയാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത്

ഓർബിറ്റർ ലാൻഡർ റോവർ എന്നിവ അടങ്ങിയതാണ് ടിയാൻവെൻ എന്ന് ചൈനയുടെ ഭൌമ വിഭാഗം അറിയിച്ചു

എല്ലാവർക്കും അന്താരാഷ്ട്ര കുടുംബദിന ആശംസകൾ നേരുകയായിയിരുന്നു അദ്ദേഹം

ബീഹാർ ഗവർണറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്